തിലോത്തമൻ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വ്യോമയാന വകുപ്പിലെ ഉദ്യോഗ സ്ഥരുടെ പരിശോധന ഇന്ന് ആരംഭിക്കും ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഹോങ്കോങിനെ പരാജയപ്പെടുത്തി ദക്ഷിണമേഖലാ ജൂനിയർ അത്ലറ്റിക്സിൽ തമിഴ്നാടിന് ഓവറോൾ കിരീടം

ഭൌമ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ബ്രിട്ടന്റെ രണ്ട് ഉപഗ്രഹങ്ങൾ ഐ എസ് ആർ ഒ വിജയകരമായി വിക്ഷേപിച്ചു ഐ എസ് ആർ ഒയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സിന്റെ പൂർണ്ണ വാണിജ്യ ദൌത്യമാണ് വിജയം കണ്ടത് ഒറ്റദൌത്യത്തിൽ ഒന്നിലേറെ ഉപഗ്രഹങ്ങളെ വ്യത്യസ്ത ഭ്രമണപഥത്തിലെത്തിക്കുക എന്ന റെക്കോർഡുകൂടി ഇതോടൊപ്പം ഐ എസ് ആർ ഒ കൈവരിച്ചു

ഉപഗ്രഹങ്ങൾക്ക് ബ്രിട്ടീഷ് കമ്പനി ഉദ്ദേശിച്ച ഭ്രമണപഥം ലഭി ക്കുന്നതിനുവേണ്ടിയാണ് വിക്ഷേപണം രാത്രിയിലാക്കിയത് വനഭൂപട നിർമ്മാണം സർവ്വെ വെള്ളപ്പൊക്കം ഉൾപ്പെടെ ദുരന്തങ്ങളുടെ വിശകലനം എന്നിവയ്ക്കുവേ ണ്ടിയാണ് ഈ ഉപഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുക

് ് ് ് ് ് ് ് ബ്രിട്ടന്റെ രണ്ട് ഉപഗ്രഹങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വിജയകരമായി വിക്ഷേപിച്ച ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനു മോദിച്ചു ബഹിരാകാശ ബിസിനസ്സിൽ രാജ്യത്തിന്റെ കഴിവ് തെളിയിക്കുന്നതാണ് വിക്ഷേപണമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു

സംസ്ഥാനത്ത് അടിമാലിയിലാണ് ഈ എസ് ഐ ്ക്ലിനിക്ക് തുട ങ്ങുന്നത് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ബ്രാഞ്ച് ഓഫീസും ആശുപത്രിയുമാണ് അടിമാലിയിൽ തുടങ്ങുന്നത്

മുഖ്യമന്ത്രിയുടെ ദുരിതാശാസ നിധിയിലേക്ക് ജനം നിർലോഭമായ സഹായമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

തൃശൂരിലാണ് കൂടുതൽ

ഒന്നര പവന്റെ വളയും ലഭിച്ചു ഇന്ന് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ധനസമാഹരണയജ്ഞം നടക്കും ് ് ് ് ് ് ് ് നവകേരള നിർമ്മാണത്തിനായി നടത്തുന്ന വിഭവ സമാഹരണത്തിന് ഇന്ന് കണ്ണൂരിൽ മന്ത്രി ഇ

ജയരാജൻ നേതൃത്വം നൽകും രാവിലെ കണ്ണൂർ പൊലീസ് സഭാ ഹാൾ മട്ടന്നൂർ മുനിസിപ്പൽ ഓഫീസ് ഉച്ചയ്ക്കുശേഷം തലശ്ശേരി റൂറൽ ബാങ്ക് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിൽ ഫണ്ട് ശേഖരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനിധിയിലേക്ക് ധനം സമാഹരിക്കു ന്നതിന് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വാർഡുകളിലും ജനപങ്കാളിത്ത്തോടെ ഗൃഹസന്ദർശനം നടത്തുമെന്ന് ജില്ലാ കലക്ടർ പി

നൂഹ് പറഞ്ഞു ചെക്ക് ഡ്രാഫ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഭൂമി മറ്റ് ആസ്തികൾ ഉപകരണങ്ങൾ പണം എന്നിവ സംഭാവനയായി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഇളംദേശം ബ്ലോക്കുകളിൽ നിന്ന് ഇന്ന് ഫണ്ട് ശേഖരിക്കും

കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നാളെ യാണ് ഫണ്ട് സമാഹരണം ് ് ് ് ് ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലൈസൻസ് നൽകുന്നതിന് മുന്നോടിയായി അവസാന വട്ട പരിശോധനകൾക്ക് വ്യോമ്യാന് വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇന്ന് മട്ടന്നൂരിലെത്തും

വിമാനത്താവളം അടുത്തമാസം അവസാനം ഉദ്ഘാടനം ചെയ്ത് നവംബറിൽ സർവ്വീസ് ആരംഭിക്കാനുള്ള ഒരുക്ക ങ്ങളാണ് നടക്കുന്നത്

സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണെന്ന് സമരനേതാക്കൾ അറിയിച്ചു

നാളെ സംസ്ഥാന വ്യാപക മായി പന്തംകൊളുത്തി പ്രകടനം നടത്തുമെന്നും അവർ അറിയിച്ചു അതേസമയം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ മറ്റന്നാൾ അന്വേഷണസംഘത്തിന് മുമ്പിൽ ഹാജ രായേക്കും ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീഖറെ രോഗബാധയെ തുടർന്ന് ഡൽഹി യിലെ എയിംസിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്ഥിതി വില യിരുത്താൻ ബി ജെ പി കേന്ദ്രസംഘം പനാജിയിലെത്തി പാർട്ടി നേതാക്കളായ രാംലാൽ ബി

സന്തോഷ് വിജയ് പുരാനിക് എന്നിവർ ബി ജെ പി എം എൽ എമാരുമായും സഖ്യത്തെ പിന്തുണയ്ക്കുന്ന ഗോവ ഫോർവേഡ് പാർട്ടിയുമായും കക്ഷിരഹിതരുമായും ചർച്ച നടത്തി നേതൃമാറ്റമില്ലെന്ന് രാംലാൽ പിന്നീട് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ ഇന്ന് വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

സിൻഹയെ കണ്ട് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യ പ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമെന്ന നില യിൽ കടമകൾ മറക്കുന്നില്ലെന്നും വേണ്ടി വന്നാൽ ഗവൺമെന്റുണ്ടാക്കാൻ മടി ക്കില്ലെന്നും പാർട്ടി പുറത്തിറക്കിയ വാർത്താകുറിപ്പിൽ അറിയിച്ചു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാൻ ബി ജെ പി പദ്ധതിയിടുന്നതായി ഗവർണറെ അറിയിച്ചുവെന്നും വാർത്താകുറിപ്പിൽ പറഞ്ഞു

അത്ര അതിവേഗമാണ് രണ്ടിന്റെയും വില കുതിച്ചുയ രുന്നതെന്ന് പാർട്ടി വക്താവ് അഭിഷേക് സിംഗ്വി ന്യൂഡൽഹിയിൽ പറഞ്ഞു

മല്യയ്ക്ക് വായ്പ നൽകിയ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കേസിൽ പ്രതികളായേക്കുമെന്ന് സി ബി ഐ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു എന്നാൽ ഇവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ സി ബി ഐ തയ്യാറായില്ല ് ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഹോങ്കോങിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി

ഇന്ന് ഗ്രൂപ്പ് ബിയിൽ അബുദാബിയിൽ ശ്രീലങ്ക അഫ്ഗാനിസ്ഥാനെ നേരിടും ് ് ് ് ് ് ് ് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ സമാപിച്ച ദക്ഷിണമേഖലാ ജൂനിയർ അത്ലറ്റിക്സിൽ നിലവിലെ ജേതാക്കളായ കേരളത്തെ അട്ടിമറിച്ച് തമിഴ്നാട് ഓവ റോൾ കിരീടം നേടി

ഐ സി സി വനിതാ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് തോൽവി

കൊളംബോയിൽ ശ്രീലങ്ക മൂന്നു വിക്കറ്റിനാണ് ഇന്ത്യയെ തോല്പിച്ചത് ് ് ് ് ് ് കായികരംഗത്തെ സമഗ്രസംഭാവനയ്ക്ക് നൽകുന്ന ധ്യാൻചന്ദ് പുര സ്കാരം ഇന്ന് പ്രഖ്യാപിച്ചേക്കും ഒളിമ്പ്യൻ ബോബി അലോഷ്യസടക്കം നാലു പേരെയാണ് പുരസ്കാരത്തിന് ജസ്റ്റിസ് മുകുൾ മുഡ്ഗൽ അധ്യക്ഷനായ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മലബാർ സ്പോർട്സ് അക്കാദമി ചാമ്പ്യന്മാരായി കുന്നമംഗലം ഗ്വൺമെന്റ് കോളേജ് രണ്ടുംസായ് കോഴിക്കോട് മൂന്നും സ്ഥാനങ്ങളിലെത്തി ് കന്നിമാസ പൂജകൾക്ക് ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് ഇന്ന് പുലർച്ചെ മുതൽ പതിവുപൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും തുടക്കമായി തന്ത്രി കണ്ഠരര് രാജീവരരുടെ കാർമ്മിക്ചത്തിൽ ദേവപ്രശ്ന പരിഹാരക്രിയകളും ആരംഭിച്ചു പ്രളയത്തിൽ പമ്പാ ത്രിവേണിയിൽ വ്യാപകനാശം ഉണ്ടായതിനാലാണ് പരിഹാരക്രിയകൾ നടത്തുന്നത് വിശ്വകർമ്മ സർവ്വീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വകർമ്മ ദിനം സംസ്ഥാനത്ത് ഇന്ന് വിവിധ പരിപാടികളോടെ ആചരിക്കും

പ്രളയബാധിതരെ സഹാ യിക്കുന്നതിനായി ഘോഷയാത്രയും കലാപരിപാടികളും മാറ്റിവെച്ച് സമാഹരിക്കു ന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസനിധിയിലേക്ക് സംഭാവന ചെയ്യും ഉരുൾപൊട്ടലിനെ തുടർന്ന് തകർന്ന കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം റോഡ് താൽക്കാലികമായി ഗതാഗതത്തിന് ഇന്ന് തുറന്നുകൊടുക്കും

അമ്പായത്തോടു മുതൽ ബോയ്സ് ടൌൺ വരെ പാൽചുരം റോഡിൽ മൂന്നര കിലോമീറ്ററിലധികം റോഡ് ഉരുൾപൊട്ടലിൽ തകർന്നിരുന്നു പ്രളയത്തെ തുടർന്ന് പൊന്നാനിയിൽ അറബിക്കടലിൽ രൂപപ്പെട്ട മണൽത്തിട്ട കാണാൻ സഞ്ചാരികൾ എത്തുന്നത് മലപ്പുറം ജില്ലാ കലക്ടർ നിരോ ധിച്ചു അഴിമുഖത്ത് രൂപപ്പെട്ട മണൽത്തിട്ട ഏതു സമയവും താഴ്ന്ന് പോകാൻ ട സാധ്യതയുള്ളതിനാലാണ് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് നിരോധിച്ചത് പുതു തായി കടലിൽ രൂപം കൊണ്ട മണൽത്തിട്ട അസ്ഥിര പ്രതിഭാസമാണ്

ഇരിയ അട്ടേങ്ങാനം വെള്ളമുണ്ടയിലെ ഉണ്ണികൃഷ്ണ നാണ് മരിച്ചത് ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം മികച്ച അക്കാദ മിക് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും വിദ്യാലയങ്ങൾ മൂൻഗണന നൽകണ മെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു കണ്ണൂർ കാപ്പാട് കൃഷ്ണവി ലാസം യു പി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം പൊതു വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട നഗരത്തിൽ പൊലീസ് നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് നാലരകിലോ കഞ്ചാവ് പിടിച്ചെടുത്തു ഇതു മായി ബന്ധപ്പെട്ട് അസം സ്വദേശികളായ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാൻ ചെറിയ പായ്ക്കറ്റുകളിലാക്കിയ കഞ്ചാവാണ് പിടിച്ചെടുത്തത്

മഹാളി രോഗം കാരണം നാശനഷ്ടമുണ്ടായ അടയ്ക്ക കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ അടിയന്തരമായി അപേക്ഷ സ്വീകരിക്കണമെന്ന് കർഷക സംഘം കാസർകോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കർഷകരുടെ ദുരിതം പഠി ക്കാൻ കൃഷി വകുപ്പ് സംഘത്തെ നിയോഗിക്കണമെന്നും കർഷകർക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും കർഷകസംഘം ആവശ്യമുന്നയിച്ചു

ശ്ചിതകാല സമരം ആരംഭിച്ചു വേതന വർദ്ധന ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്